സ്ഥാപിക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങൾക്ക് തുടർന്നും പിന്തുണ നൽകുമെന്ന് ഇന്തൃ

പുതിയ സാഹചര്യങ്ങൾ ഗവൺമെന്റ് സൃഷ്ടിക്കുന്നതായി കേന്ദ്ര കായിക മന്ത്രി രാജ്യ വർദ്ധൻ റാത്തോഡ്

പ്രഗതി മൈതാനിയിൽ തുടക്കമാകും

കൻഖാർ ജലവൈദ്യുത പദ്ധതിയ്ക്കും ജാർഖണ്ഡിൽ മണ്ഡൽഡാം പദ്ധതിയ്ക്കും അദ്ദേഹം തറക്കല്ലിടും കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

നാലുവരി ദേശീയപാത പദ്ധതിയും ആറ് പാസ്പോർട്ട് സേവനകേന്ദ്രങ്ങളും ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം ടാറ്റാ നഗറിൽ നിന്നും ബദംപഹറിലേക്കുള്ള രണ്ടാമത്തെ പാസ്സഞ്ചർ ട്രെയിനും ഫ്ളാക്ഓഫ് ചെയ്യും

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അഫ്ഗാനിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ് ഹംദുള്ള മോഹിബും ഇന്നലെ ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു അഫ്ഗ്മൂന്റെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള എല്ലാ സമാഗ്ലാന്റ് ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് ശ്രീ

രാജ്യത്തെ ജനങ്ങൾ ജനാധിപത്യ ഭരണത്തിൽ വിശ്വാസം അർപ്പിച്ചതിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച ശ്രീ ഡോവൽ അഫ്ഗാനിസ്ഥാനിൽ വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അഭിപ്രായപ്പെട്ടു

അന്വേഷണം പൂർത്തിയാക്കാൻ എൻഐഎ ക്ക് വിചാരണ കോടതി സമയം നീട്ടി നൽകിയ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യാ നൽകാനാവില്ലെന്ന് കോടതി പറഞ്ഞു നേരത്തെ ജാമ്യാ നിഷേധിച്ചു വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും തീരുമാനത്തിൽ തെറ്റില്ലെന്നും ജസ്റ്റിസുമാരായ ഡി

ഇയാൾക്ക് ക്ര്നിരോധിത തീവ്രവാദ സംഘടനയായ ഹിസ്ബുൾ മുജാഹുദ്ദീന്റുമാ്യി ബന്ധമുണ്ടെന്നും തന്റെ അച്ഛന്റെ നിർദ്ദേശപ്രക്കാരും സൌദി അറേബൃയിലെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് ഫീണ്ട് സ്വരൂപീക്കന്നുണ്ടായിരുന്നു എന്നുമാണ് എൻഐഎ പറയുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടു പാക്കിസ്ഥാനിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് ഹവാ്ലയായി പണം അയയ്ക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂസഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്

ഇന്നലെ ന്യൂഡൽഹിയിൽ ന്യൂതന വിദ്യാഭ്യാസ നിർവഹണത്തിൽ പുരസ്ക്കാരം നിർണയിക്കുന്ന സന്ദർഭത്തിൽ ദേശീയ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂതന രീതികളിലൂടെയുള്ള അധ്യാപന രീതികൊണ്ട് വിദ്യാഭ്യാസം ഉചിതമാക്കാൻ അധ്യാപകർക്കെ സാധിക്കുവെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ സംസ്ഥാന മാനവവിഭവശേഷി വകുപ്പു മന്ത്രി ഡോ

വിഷയത്തിൽ പഠനം നടത്തിയ ഉണ്ടിത്ത്ല കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഹരിത ട്രൈബ്യൂണർ ചെയർപേഴ്സൺ എ

സ്ക്സ്മാനത്തെ ഭൂരിഭാഗം ഖനികളും അംഗീകാരമോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ രാജ് പഞ്ചാവാനിയെ അമിക്കേസ് ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട് അനധികൃതമായി നിരവധി ഖനികൾ പ്രവർത്തിക്കുന്നതായി മേഘാലയ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു

ഖനിയിലെ വെള്ളം പമ്പുചെയ്തു പുറത്തുകളയുന്നതിനുള്ള ശ്രമങ്ങൾ ഇതു വരെ ഫലപ്രാപ്തി കണ്ടിട്ടില്ല

ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യമായ ഇടപെടലുണ്ടായാൽ മെഷീൻ ഫാക്ടറി മോഡിലാകുമെന്നും അദ്ദേഹം ജയ്പൂരിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെ അറിയിച്ചു ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ അതീവ സുക്ഷിതമാണെന്നും അതിനാൽ ഹാക്ക് ചെയ്യാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലെ രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

പ്രത്യേക പരിഗണന ആവശ്യമുള്ള വായനക്കാർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം

ആകാശവാണിയാണ് മേളയുടെ റേഡിയോ പങ്കാളി

ഓൺലൈനായും തെരഞ്ഞെടുത്ത ക്രമട്രോസ്റ്റേഷനുകളിലും പ്രഗതി മൈതാൻ ഗേറ്റിലും ടിക്കറ്റുക്കിൾ ്ലഭിക്കും

നിരവധി രാഷ്ട്രീയക്കാരുടെയും പൊതുജനങ്ങളുടെയും സ്വകാര്യ വിവരങ്ങളും രേഖകളും ഇന്റർ നെറ്റിലൂടെ പരസ്യമാക്കിയതായി ഔദ്യോഗിക വക്താവ് അറിയിച്ചു എന്നാൽ ചാൻസിലറിന്റെ ഓഫീസിൽ നിന്നും ഒരു വിധത്തിലുള്ള രേഖകളും ചോർന്നിട്ടില്ലെന്ന് പ്രാഥമിക സൂചിപ്പിക്കുന്നു ചോർത്തപ്പെട്ട വിവരങ്ങൾ സ്വകാര്യ രേഖകൾ വ്യക്തി ഗത മേൽവിലാസം മൊബൈൽ ഫോൺ നമ്പർ തിരിച്ചറിയൽ രേഖകൾ എന്നിവ കഴിഞ്ഞ എഴുത്തുകൾ ഡിസംബറിൽ ട്വിറ്ററിലൂടെയാണ് പുറത്തുവന്നത്

ഇതു സംബന്ധിച്ചുള്ള വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടു ഘട്ടങ്ങളിലായാണ് നിയമനങ്ങൾ നടക്കുന്നത്

വാർത്താവിതരണ പ്രക്ഷേപണിച്ചു മന്ത്രാലയ വകുപ്പ് സെക്രട്ടറി അമിത് ഖാരെ ന്യൂഡൽഹ്റിയിൽ ഫെസ്റ്റിവൽ ഉത്ഘാടനം ചെയ്തു

അന്തരിച്ച ബംഗാളി സംവിധായകൻ മൃണാൾസെന്നിന് അനുശോചനം അർപ്പിച്ചു കൊണ്ടാണ് ഉത്ഘാടന ചടങ്ങ് ആരംഭിച്ചത്